ജനങ്ങളുടെ ഉത്സാഹവും ധൈര്യവും മൂലം കേരളം ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വാസമു ണ്ടെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രളയത്തിൽ ഭൂമി നഷ്ടമായവർക്ക് പകരം ഭൂമി കണ്ടെത്താൻ ഗവൺമെന്റ് സഹായിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു പ്രളയത്തിൽ തകർന്ന വൈദ്യുതി ബന്ധം നാല് ദിവസത്തിനകം സാധാ രണനിലയിലാക്കുമെന്ന് മന്ത്രി എം

പ്രകൃതി ദുരന്തത്തിൽ മുറിവേറ്റവർ എത്രയും വേഗം പൂർവസ്ഥിതി വീണ്ടെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക്യാ ണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ഉത്സാഹവും അധമ്യമായ ധൈരൃവും കാരണം കേരളം ഉയർത്തെഴുന്നേൽക്കുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടെന്നും നരേന്ദ്രമോദി അറിയിച്ചു സാമൂഹിക മാറും കൂടാതെ സാമ്പത്തിക പുരോഗതി അപൂർണ്ണമാണ് ലോക്സഭയിൽ മുത്തലാഖ് ബിൽ പാസായെങ്കിലും രാജ്യസഭയിൽ പരാജയപ്പെട്ടു രാജ്യം മുഴുവൻ മുസ്ലിം സ്ത്രീകൾക്ക് നീതിയയേകാൻ അവർക്കൊപ്പമുണ്ടെ ന്ന് ഉറപ്പു നൽകുകയാണ്

ഈ സാഹചര്യത്തിലാണ് വനിതാ പീഡനങ്ങൾക്ക് എതിരായ് ബിൽ പാസാക്കിയത് മുൻ പ്രധാനമന്ത്രി അഡൽബിഹാരി വാജ്പേയ് രാജ്യത്ത് പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവന്നുവെന്ന് പ്രധാനമന്ത്രി പറ ഞ്ഞു രാഷ്ട്രീയ സ്ഥിരത ഉറപ്പുവരുത്തിയതാണ് അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടങ്ങളിൽ ഒന്നെന്നും മോദി അഭിപ്രായപ്പെട്ടു കൂറുമാറ്റ നിരോധന നിയമം വാജ്പേയ് കൂടുതൽ കർശനമാക്കിയെന്നും അദ്ദേഹം അഭിപ്രായ പ്പെട്ടു ഇപ്പോൾ നാം എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ ഭാവിയെക്കുറിച്ചുകൂടി ചിന്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മാറിയ യുഗത്തിൽ നാം പുതിയ കാര്യങ്ങൾ പഠിക്കണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് വലിയ കാര്യമായി മാറിയിരിക്കയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

നമ്മുടെ കരുത്ത് നാം തിരിച്ചറിയേണ്ട സമയമാണെന്നും ലോകമെ ങ്ങുമുള്ള മലയാളികളാണ് സംസ്ഥാനത്തിന്റെ കരുത്തെന്നും മുഖ്യമന്ത്രി ഒരു സ്വകാര്യ ചാനലിനോട് പറഞ്ഞു

ഗവൺമെന്റ് ജീവന ക്കാർ ഒരു മാസത്തെ ശമ്പളം നൽകിയാൽ സംസ്ഥാനം കരകയറ്റുമെന്നും തുക ഗഡുക്കളായി നൽകാനാവുമെന്നും പിണറായി വിജയൻ അഭിപ്രാ യപ്പെട്ടു പുനരധിവാസത്തിന് എല്ലാവരുടെയും സഹായം തേടും കേരള ത്തിന്റെ വികസനത്തിൽ പ്രവാസികൾക്ക് വലിയ പങ്കുണ്ട് നല്ല രീതിയിൽ കേന്ദ്രസഹായം പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി സുചിപ്പിച്ചു ദുരിത ബാധിതരെ സഹായിക്കുന്നത് ആരും തടയുമെന്ന് തോന്നു്നില്ലെന്നും ഇപ്പോഴുണ്ടായ ആശയക്കുഴപ്പങ്ങൾ ഉടനടി മാറുമെന്നും പിണറായി് വിജ യൻ ്വ്യക്തമാക്കി

ചന്ദ്രശേഖരൻ പറഞ്ഞു

പകർച്ചവ്യാധി പ്രതിരോധിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വൃക്തമാക്കി കുടിവെള്ള പ്രശ്നം ഉടൻ പരി ഹരിക്കും

വീടുകളിലേക്ക് തിരിക്കുന്നവർക്ക് അത്യാവശ്യ സഹായം ചെയ്തുകൊടു ക്കുമെന്നും മന്ത്രി പറഞ്ഞു

ള ൽ ൾ പ്രളയത്തെ തുടർന്ന് തകരാറിലായ വൈദ്യുതി ബന്ധം നാല് ദിവസ ത്തിനകം പൂർണ്ണമായും പുനസ്ഥാപിക്കുമെന്ന് മന്ത്രി എം

ഇതിനായി യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച് വരി കയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സംസ്ഥാനത്തെ ഡാമു കൾ ഒന്നിച്ച് തുറന്നത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കി ള ൽ ശ്വ ൾ പ്രളയക്കെടുതിയുടെ പ്രതിസന്ധി ജനകീയ പങ്കാളിത്തതോടെ മറിക ടക്കുമെന്ന് മന്ത്രി എ

മൊയ്തീൻ പറഞ്ഞു പുനരധിവാസം സാധ്യ മാക്കാൻ തദ്ദേശസ്ഥാപനങ്ങളെ പ്രാപ്തമാക്കും സമഗ്ര മാറ്റത്തിന് തദ്ദേശ് സ്ഥാപനങ്ങൾ പ്രത്യേക പദ്ധതി ആവിഷ്ക്കരിക്കുമെന്നും മന്ത്രി കൊച്ചി യിൽ പറഞ്ഞു

പരമ്പരാഗതമേഖലയിലെ പുനരുദ്ധാരണത്തിന് അടിയന്തിര നടപടി സ്ഥീകരിക്കുമെന്ന് മന്ത്രി കോഴി ക്കോട്ട് അറിയിച്ചു

തോമസ് ഐസക് ആലപ്പുഴയിൽ പറ ഞ്ഞു കർഷകർക്കെല്ലാം നഷ്ടപരിഹാരം നൽകുമെന്നും അദ്ദേഹം പറ ഞ്ഞു

പകർച്ചവ്യാധി തടയാൻ എല്ലാവരും ജാഗ്രതപാലിക്കണം കുടി വെള്ള സ്രോതസ്സുകളുടെ ശുചീകരണ്ം പുരോഗമിക്കുകയാണെന്ന് മന്ത്രി തിരുവല്ലയിൽ പ്റഞ്ഞു

ശൈലജ പറഞ്ഞു വെള്ളംകയറിയതിനെ തുടർന്ന് കേടായ ആശുപത്രി ഉപകരണങ്ങൾ എത്രയും പെട്ടന്ന് പുനസ്ഥാപിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

പി ആവശ്യപ്പെട്ടു് അണ ക്കെട്ട് തുറന്നിട്ടതടക്കം വീഴ്ചകൾ രാജ്യാന്തര ഏജൻസി പരിശോധിക്ക ണമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രളയത്തെ തുടർന്ന് മേഖല യിലുണ്ടായ ദുർഘടാവസ്ഥയും സവിശേഷ സാഹചരൃവും കണക്കിലെ ടുത്താണ് പ്രത്യേക ധനസഹായം നൽകാൻ പട്ടികജാതി പട്ടികവർഗ്ഗ വകു പ്പുകൾ തീരുമാനിച്ചത് രു ൽ ശ്വ ദുരിതാശ്വാസ ക്യാമ്പുകൾ വിടുന്ന കുടുംബങ്ങൾക്ക് ഇന്നു മുതൽ ഗവ

ഇതോടെ ജില്ലയി്ലെ ക്യാമ്പുകളുടെ എണ്ണം ഏഴായി

രജത്ത് ചൌഹാൻ അ മാൻ സൈനി അഭിഷേക് വർമ്മ എന്നിവരടങ്ങിയ ടീം ഖത്തറിനെയാണ് തോൽപ്പിച്ചത് വൈകിട്ട് നടക്കുന്ന കാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഫിലിപ്പൈൻ സിനെ ്നേരിടും

കൊൽക്കൊത്തയിൽ ആദ്യമത്സരത്തിൽ രണ്ട്തവണ ചാമ്പ്യൻമാരായ അത്ലറ്റികോ ഡി കൊൽകൊത്ത രണ്ട് തവണ റണ്ണേ ഴ്സ് അപ്പായ കേരളാ ബ്ലാസ്റ്റേഴ്സിനെ നേരിടും

അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി യും പ്രതിപക്ഷ സംഖ്യവും തമ്മിലായിരിക്കുമെന്ന് അദ്ദേഹം പറ ഞ്ഞു ബ്രിട്ടൻ സന്ദർശനത്തിന്റെ അവസാനത്തിൽ പശ്ചിമലണ്ടനിലെ റൂയിസ്ലിപ്പിൽ ഇന്ത്യൻ വംശജരെ അഭിസംബോധനം ചെയ്യുകയായിരുന്നു രാഹുൽഗ്ഗാന്ധി

നിയന്ത്ര്ണരേഖയിൽ നുഴഞ്ഞ്കയറാൻ ശ്രമിക്കുന്നതിനിടെ സൈനിക നടപടികൾക്കിടയിലാണ് അവർ കീഴടങ്ങി യതെന്ന് സൈനിക വക്താക് കേണൽ രാജേഷ് കാലിയ് ശ്രീനഗറിൽ പറ ഞ്ഞു പുതുതായി റിക്രൂട്ട് ചെയ്ത നാല് ഭീകരർ മൂന്ന് ഭീകരുടെ സഹായ ത്തോടെ നുഴഞ്ഞ് കയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് സൈന്യവും പൊലീസും ചേർന്ന് സംയുക്ത നടപടി സ്ഥീകരി ക്കുകയായിരുന്നു

മറ്റ് ഭീകരർക്കായി ്വതിരച്ചിൽതുടരുകായ ണെന്നും അദ്ദേഹം പറഞ്ഞു

വധു ഡോക്ട റാണ് കല്യാണ പിറ്റേന്ന് കിണ്ണംകട്ട കള്ളൻ തുടങ്ങി ഇരുപതോളം സിനി മകൾ സംവിധാനം ചെയ്തിട്ടു്ണ്ട്

ഇപ്പോൾ ചെങ്ങന്നൂർ പുത്തൻകാവ് ക്ത്തീഡ്രലിൽ പൊതുദർശന ത്തിനു വെച്ചു ഭൌതികശരീരം ഒരു മണിയോടെ ഓതറയിലേക്ക് കൊണ്ടു പോകും തുടർന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൌലോസ് ദിതി യൻ കാതോലിക്ക ബാവയുടെയും വിവിധ തിരുമേനിമാരുടെയും വൈദി കരുടെയും നേതൃത്വത്തിൽ സംസ്കാര ശുശ്രൂഷ് നടക്കും വെള്ളിയാഴ്ച കൊച്ചിയിലേക്ക് വരുന്നതിനിടെ ട്രെയിനിൽ നിന്ന് വീണാണ് തോമസ് മാർ അത്തനാസിയോസ് മരിച്ചത്

ആനക്കയം മുതൽ കടലുണ്ടിപ്പുഴയുടെ തീര ങ്ങളിലാണ് തെരച്ചിൽ നടത്തുന്നത് ആനക്കയം പാലത്തിനു സമീപത്ത് രണ്ടു കിലോമീറ്ററോളം ഇന്നലെ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടാ യില്ല പ്രളയത്തിൽ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ സമീപത്തെ വയ ലുക്ളിലും പറമ്പുകളിലും ഫയർഫ്പോഴ്സും പൊലീസും നാട്ടുകാരും ചേർന്ന് തെരച്ചിൽ നടത്തുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പിതൃസഹോദരൻ മംഗലത്തൊടി മുഹമ്മദിനെ പൊലീസ് ഇന്നലെ അറസ്റ്റ്ചെയിതിരുന്നു